പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാട് പ്രചാരണത്തിനെത്തും കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധിയും നാളെ കേരളത്തിൽ

ചൂട് പിടിക്കുന്നു ര്ണ്ടാംഘട്ടത്തിലേക്കുള്ള പരസ്യപ്രചാരണം ന്മാളെ അവസാനിക്കും

സൂയസ് കനാലിലെ ഗതാഗത തടസത്തിന് പരിഹാരം എവർഗ്രീൻ ചരക്ക് കപ്പൽ വീണ്ടും സഞ്ചാരക്ഷമമായി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പാലക്കാട് പ്രചാരണത്തിനെത്തും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും സംസ്ഥാനത്ത് നാളെ പ്രചാരണത്തിനെത്തുന്നുണ്ട് കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിങ്ങ് പീയൂഷ് ഗോയൽ എന്നിവരും എൻ

മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തു സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് തുടങ്ങിയ നേതാക്കളും എൽ ഡി എഫിനുവേണ്ടി പ്രചാരണം തുടരുകയാണ്

ഐ

സി വക്താവ് രൺദീപ് സുർജേവാല അടക്കമുള്ള കോൺഗ്രസ് ദേശീയ നേതാക്കളും പ്രചാരണത്തിൽ സജീവമാണ്

പ്രചാരണത്തിനായി പ്രമുഖരെ രംഗത്തിറക്കുന്ന തിനൊപ്പം മണ്ഡലങ്ങളുടെ മുക്കിലും മൂലയിലും വരെ പൊതുയോഗങ്ങൾ നടക്കുന്നു

അസമിൽ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ എൻഇഡിഎ കൺവീനർ ഹേമന്ദ് ബിശ്വ ശർമ എന്നിവർ ബിജെപിയ്ക്ക് വേണ്ടി പ്രചാരണം തുടരുന്നു

ന്യൂസ് ഡസ്ക് ആകാശവാണി

കെ നേതാവ് എം കെ സ്റ്റാലിൻ വെള്ളൂരിലും സമീപ ജില്ലകളിലും പ്രചാരങ്ങും തുടർന്നു

പരസ്യ പ്രചാരണം അവസാനിച്ച ശേഷം പൊതുയോഗങ്ങൾ പ്രകടനങ്ങൾ രാഷ്ട്രീയ ആഭിമുഖൃമുള്ള കലാപരിപാടികൾ തുടങ്ങിയവും ടെലിവിഷനിലും അതുപോലുള്ള ഇലക്ട്രോണിക് മാധൃമങ്ങളിലും രാഷ്ട്രീയ പ്രചാരണങ്ങളും നടത്തരുതെന്നും നിർദ്ദേശമുണ്ട്

രണ്ടു പുതിയ ഹോട്ട് സ്പോട്ടുകളാണ് ഇന്ന് സംസ്ഥാനത്ത് ഉള്ളത്

വാക്സിൻ നൽകിയതിന് ഫിജിയൻ പ്രധാനമന്ത്രി ഫ്രാങ്ക് ബെയ്നിമരാമ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചു

ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതായി കേന്ദ്ര നിക്ഷേപ് പൊതുധന വകുപ്പ് സെക്രട്ടറി തുഹിൻ പാണ്ടേ അറിയിച്ചു

പ്രദേശത്ത് കഴിഞ്ഞ മൂന്നു ദിവസമായി പോല്പീസ് ്നക്സൽ വിരുദ്ധ നടപടി കൾ നടത്തുകയായിരുന്നു കെള്ലപ്പെട്ടവരിൽ മൂന്നു പുരുഷന്മാരും രണ്ടു സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുക്ണ്ട്ന്ന് നക്സൽ റെയ്ഞ്ച് ഡി ഐ ജി സന്ദീപ് പാട്ടിൽ സ്ഥിരീകരിച്ചു

അഫ്ഗാനിസ്ഥാനിൽ നാളെ നടക്കുന്ന ഹേർട്ട് ഓഫ് ഏഷ്യ ഇസ്താംബൂൾ പ്രോസസ് മന്ത്രിതല ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും

ജയശങ്കർ സന്ദർശനത്തിന്റെ ഭാഗമായി കൂടിക്കാഴ്ച നടത്തും

കടകളിലും ഓൺലൈനായും ് പുസ്തകം ലഭ്യമാക്കിയിട്ടുണ്ട്

വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ് അധ്യാപകർ എന്നിവരിൽ നിന്നും ലഭിച്ച അഭിപ്രായങ്ങൾ കൂടി പുതിയ പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ടിറ്ററിലൂടെ അറിയിച്ചു

എസ്

രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് ഹോളി ആശംസകൾ നേർന്നു കോവിഡ് സാഹചര്യത്തിൽ ആൾക്കൂട്ടം ഒഴിവാക്കി ആയിരുന്നു മിക്കയിടത്തും ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്

കോടികളുടെ നഷ്ടത്തിനു പുറമേ ക്രൂഡ് ഓയിൽ വിലയിടി വിനും ഗതാഗത തടസ്സം കാരണമായിരുന്നു സൂയസ് കനാലിന് കുറുകേ കുടുങ്ങിക്കിടന്ന രണ്ട് ലക്ഷം ടൺ ഭാരമുള്ള കപ്പൽ മാറ്റുന്നതിന് ടഗ് ബോട്ടുകളുടെ സഹായവും ഡ്രഡ്ജിങ്ങും ഉൾപ്പെ ടെയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു

മൂവായിരത്തിലേറെപേർ മൃാൻമാറിൽ നിന്നും എത്തിയതായി തായ്ലൻഡിന്റെ ഔദ്യോഗിക വാർത്താമാധ്യമം സ്ഥിരീകരിച്ചിട്ടുണ്ട്

രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ്തിക്കിലും തിരക്കിലുംപെട്ട് ഏഴോളം ്പേർ മരിച്ചിട്ടുണ്ട്